ആറാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സജീവം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഇന്ത്യൻ നദികളിലെ മുഴുവൻ ജലവും ഇന്ത്യൻ കർഷകർക്ക് ലഭൃമാക്കുമെന്ന് മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്ര മോദി

അസമിലെ ദേശീയ പൌരത്വ രജിസ്റ്റർ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി നീട്ടി നൽകില്ലെന്ന് സുപ്രീംകോടതി

എൽ എലിമിനേഷൻ മത്സരത്തിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺ റൈസേഴ്സ് ഹൈദ്രാബാദ് പോരാട്ടം

ആറാം ഘട്ട വോട്ടെടുപ്പിന് നാല് ദിവസം ശേഷിക്കെ സ്ഥാനാർത്ഥികളും നേതാക്കളും അവസാനഘട്ട പ്രചാരണ ത്തിലേക്ക് കടന്നു

കച്ചവടക്കാർക്ക് വേണ്ടിയൊരു ദേശീയ കമ്മീഷൻ ചെറുകിട കച്ചവടക്കാർക്ക് പെൻഷൻ കർഷകരുടെ ക്ഷേമത്തിന് വിവിധ പദ്ധതി കൾ എന്നിവയും എൻ

എ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്നും ശ്രീ

സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരുടേയും ഉന്നമനത്തി നായി തന്റെ ഗവൺമെന്റ് പ്രവർത്തിച്ചതായി സിർസയിൽ മറൊരു പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ബിജെപി അധ്യക്ഷൻ അമിത് ഷാ ജാർഖണ്ഡിലും മധ്യപ്രദേശിലും തെരഞ്ഞെ ടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നൃായ് പദ്ധതി കർഷകർക്ക് പ്രത്യേക ബജറ്റ് നോട്ട് റദ്ദാക്കലിന്റെ ദോഷഫലങ്ങൾ റഫേൽ അഴിമതി എന്നിവ എടുത്തുകാട്ടി ഗവൺമെ ന്റിനെ ആക്രമിച്ചു മധ്യ പ്രദേശിലെ ഭിന്ദിൽ തെരഞ്ഞെടുപ്പ് യോഗത്തി ലാണ് ശ്രീ

കർഷകരോടും യുവാക്ക ളോടും എൻ

കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ബി

അ്യുക്ഷ മായാവതി തുടങ്ങി പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇവയുടെ ഉയരുന്ന വില സാധാരണക്കാരന്റെ ജീവിതഭാരം ദുസ്സഹമാക്കുന്നു എന്ന് കോൺഗ്രസ് കരുതുന്നതായി രാഹുൽ ഫേസ് ബുക്കിൽ കുറിച്ചു

മുൻമുഖ്യമന്ത്രിയും നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ഷീലാദീക്ഷിത്തും റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്കെതിരെയാണ് പ്രചാരിണ് വേളയിൽ കോൺഗ്രസ്സ് അധ്യക്ഷൻ പരാമർശം നടത്തിയത് കോടതിയെ ബഹുമാനിക്കുന്നു എന്നും നീതിനൃായ വൃവസ്ഥയുടെ സംരക്ഷണത്തിന് വിഘാതമാകുന്ന തൊന്നും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ലെന്നും ശ്രീ

ജെ

മീനാക്ഷി ലേഖിയാണ് ഇത് സംബന്ധിച്ച് സുപ്രീംകോടതിയിൽ പരാതി നൽകിയത്

പ ചൈനയ്ക്ക് പുറമെ പ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി റഷ്യ എന്നിവയാണ് ഉടമ്പടിയിലെ അംഗ രാജ്യങ്ങൾ അമേരിക്ക ഏകപക്ഷീയമായി ഉപരോധം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് സഖ്യരാജ്യങ്ങളോട് ചൈനയുടെ ആഹ്വാനം

അമേരിക്കൻ സമ്മർദ്ദം മൂലമാണ് ഇറാന് ആണവ കരാറിലെ വൃവസ്ഥകൾ പൂർണമായും പാലിക്കാൻ കഴിയാതെ പോയതെന്ന് ക്രെംലിൻ വക്താവ് പറഞ്ഞു

രാജ്യത്ത് ഉയർന്നു വരുന്ന മതമൌലിക വാദത്തിന് തടയിടാനാണ് നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നത് രാജ്യത്തെ മുസ്ലീം സമുദായ നേതാക്കന്മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വിഷയം പരിഗണിക്കുമെന്ന് ശ്രീലങ്കയിലെ മുസ്തീം മതകാരൃ മന്ത്രി അബ്ദുൾ ഹലീം പറഞ്ഞു രാജ്യത്ത് പ്രവർത്തിക്കുന്ന നിരവധി മദ്രസകൾക്കുള്ള പ്രവർത്തന ഫണ്ട് വിദേശത്ത് നിന്നാണെന്നും ഇവയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത കുറവുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അതിനാൽ ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കു ന്നതിന് അനുയോജ്യമായ നിയമ രൂപീകരണം പുരോഗമിക്കുക യാണെന്നും അദ്ദേഹം പറഞ്ഞു കരടുബില്ല് തയ്യാറാക്കുന്നതിനായി ഇന്ത്യയിലേയും ബംഗ്ലാദേശിലേയും നിയമങ്ങൾ പഠനവിധേയമാക്കിയ തായും ശ്രീലങ്കൻ മന്ത്രി കൂട്ടിച്ചേർത്തു

വെങ്കയ്യ നായിഡു നാല് ദിവസത്തെ സന്ദർശന ത്തിനായി നാളെ വിയറ്റ്നാമിലേക്ക് പുറപ്പെടും ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം വഴിതെളിക്കുമെന്നാണ് പ്രതീക്ഷ വിയറ്റ്നാം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഉപരാഷ്ട്രപതി പതിനാറാമത് ഐക്യരാഷ്ട്ര സംഘടന ദിനാഘോഷത്തിൽ പങ്കെടുക്കും ലോക നേതാക്കളുടെ ബുദ്ധിസ്റ്റ് സമീപനവും സുസ്ഥിര സമൂഹത്തിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം പങ്കുവയ്ക്കലും എന്ന വിഷയത്തിൽ നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ സമ്മേളനത്തിൽ ശ്രീ

ഇന്ത്യൻ അംബാസിഡർ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത ശ്രീ വെങ്ക്യു നായിഡു വിയറ്റ്നാമിന്റെ തലസ്ഥാനമായ ഹനോയിലുള്ളൂ ് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു

ലോകജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ റെഡ് ക്രോസ് വോളന്റിയർമാർക്കുമുള്ള നന്ദി സൂചകം കൂടിയാണ് ദിനാചരണം

മുതിർന്ന കോൺഗ്രസ് നേതാവ് പി

ഇക്കാലയളവിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് തുടർച്ചയായി താഴ്ന്നതായി ശ്രീ

കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ കാരണം വൻതോതിലുള്ള തൊഴിൽ അവസര ങ്ങളാണ് നശിപ്പിക്കപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു

ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്ക വെ മുതിർന്ന ബിജെപി നേതാവ് പ്രകാശ് ജാവദേക്കറാണ് ഇക്കാര്യം പറഞ്ഞത്

ബോഫോഴ്സ് കോമൺവെൽത്ത് കുംഭകോണ്ട്ട്ളുട്ടെ കുറ്റവും അദ്ദേഹം കോൺഗ്രസിനു മേൽ ആരോപിച്ചു

രാസവസ്തു വില്പനശാല ഉടമകളായ മുസാഫർ അഹ്മദ് ഇർഫാൻ അഹ്മദ് എന്നിവർക്കാണ് വെടിയേറ്റത് എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല

ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപ്പിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദ്രാബാദിനെ നേരിടും

തോൽക്കുന്നവർ ടൂർണമെന്റിൽ നിന്ന് പുറത്താകും ജയിക്കുന്ന ടീം ഒരു കളികൂടി ജയിച്ചാലെ ഫൈനലിൽ പ്രവേശിക്കാനാകൂ ഇന്നത്തെ കളിയിൽ ജയിക്കുന്ന ടീം ചെന്നൈ സൂപ്പർ കിംഗ്സിനോടാണ് ഏറ്റുമുട്ടേണ്ടത്

ഈ ബൂത്തുകളിൽ വോട്ടെടുപ്പ് വീണ്ടും നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു ബൂത്തുകളിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നതായും ഭരണപക്ഷമായ ബിജെപി പ്രവർത്തകർ വോട്ടർമാരെ തടഞ്ഞതായും ആരോപണം ഉണ്ടായിരുന്നു